ലോക്സഭയിൽ ബി ജെപിയുടെ അവകാശ ലംഘന നോട്ടീസ് റാഫേൽ വിമാന ഇടപാടിൽ പ്രധാനമന്ത്രിക്കും രാജ്യരക്ഷ മന്ത്രിക്കും എതിരെ കോൺഗ്രസിന്റെ അവകാശ ലംഘന നോട്ടീസ്

പുതുക്കിയ പദ്ധതി റിപ്പോർട്ടിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം

പൂർത്തിയായി

ആദ്യഫല സൂചനകൾ അൽപസമയത്തിനകം

അഞ്ച് ബ്രിക്ട്സ് രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഉച്ചകോടിക്ക് ഇന്ന് തുടക്കുമാകും അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ തുടങ്ങി വിവിധ വിഷ്യങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും ചൈനീസ് പ്രസിഡന്റ് ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പൂടിൻ ദക്ഷിണാഫ്രിക്കൻ പ്രഡിഡന്റ് സിറിൽ രാമാഫോസ എന്നിവരുമായി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉഗാ ൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് വിശദാംശങ്ങളുമായി ദീപു എസ് എൽ വോയിസ് പരമ്പരാഗതമായി ഇന്ത്യയും ഉഗാ യും ഉഭയകക്ഷി ബന്ധം നിലനിർത്തിയിരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഉഗാ ൻ രാഷ്ട്രപിതാവിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായ ജിങ്കയിൽ ഇന്ത്യ മഹാത്മാഗാന്ധി സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

നികുതി സ്ഥിരത പ്രവചിക്കാൻ കഴിയുന്ന നികുതി തുടങ്ങി നയപരമായി സദ്ഭരണമുള്ള രാജ്യമാണ് ഇന്ത്യ

വാണിജൃ നിക്ഷേപ മേഖലകളിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും ഉഗാ ൻ പ്രസിഡന്റ് യൊവേരി മുസേവിനി പറഞ്ഞു റുവാ ൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഉഗാ യിൽ എത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു

പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ലക്ഷ്യം വെക്കുന്ന നാലു ധാരണാപത്രങ്ങളിലും പ്രധാനമന്ത്രി തന്റെ സന്ദർശന വേളയിൽ ഒപ്പു വച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാറ്റ് വോട്ടിങ്ങ് യന്ത്രത്തിന്റെ വിതരണത്തിന് കാല താമസമു ാകുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെരൂഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഇത് സംബന്ധിച്ച വാർത്തകൾ അട്ടിസ്ഥാന രഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഉപ്പാതു തെരഞ്ഞെടുപ്പിനും നിയമസഭാ ലോകസഭാ ഉപതെരഞ്ഞെടു്പ്പുകൾക്കും ഉപയോഗിക്കാനുള്ള വി വി പാറ്റ് വോട്ടിങ്ങ് മെഷീനുകളുടെ വിന്യാസത്തിനുള്ള ക്രമീകരണം നൂറ് ശതമാനവും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി എം പി അനുരാഗ് താക്കൂറാണ് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനും എതിരെയാണ് കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് നൽകിയത് അവിശ്വാസപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കവേ ഇരുവരും സൂഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി നോട്ടീസിൽ ആരോപിക്കുന്നു

ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ ചർച്ചക്കൊടുവിൽ രാജ്യസഭ ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ് എൽ വോയിസ് നികുതി വായ്പ കുടിശ്ശികകൾ വരുത്തി രാജ്യം വിടുന്നവരുടെ സ്വത്തുവകകൾ ക ുകെട്ടാൻ ബിൽ ഗവൺമെന്റിന് അധികാരം നൽകുന്നതായി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അവതരണ വേളയിൽ വ്യക്തമാക്കി

ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതും ബിൽ ലക്ഷ്യം വയ്ക്കുന്നതായി പീയുഷ് ഗോയൽ അറിയിച്ചു സാമ്പത്തിക കുറ്റവാളികളെ രാജ്യത്തേക്ക് മടക്കി കൊ ുവരാൻ എല്ലാ രാജ്യങ്ങളുമായും കരാർ ഒപ്പു വയ്ക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യനായിഡു പറഞ്ഞു പ്രധാനസാമ്പത്തിക കുറ്റവാളികൾ എല്ലാം രാജ്യം വിട്ടതിനാൽ ബില്ലിന് പ്രസക്തി നഷ്ടപ്പെട്ടതായി കോൺഗ്രസ് അംഗം വിവേക് കെ തൻക അഭിപ്രായപ്പെട്ടു എന്നാൽ ബി ജെ പി നിലപാടിനെ എതിർത്തു കളളപ്പണത്തിനെതിരെ യാതൊന്നും ചെയ്യാൻ യു പി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി അംഗം ഭൂപ്പേന്ദ്രിയാദവ് പറഞ്ഞു

കോൺഗ്രസ് കള്ളപ്പണത്തിനെതിരെ നീക്കം നടത്തുന്നതായ പ്രതിഛായ സൃഷ്ടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ഫ്യുജിറ്റീവ് എക്കണോമിക് ഒഫന്റേഴ്സ് ബിൽ സംബന്ധിച്ച നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാജീവ് ഗൌഡ എം പി ആരോപിച്ചു ബില്ലിൽ അനേകം പഴുതുകൾ ഉ െ ന്നും ഇത് പരിഹരിക്കാൻ ഗവൺമെന്റ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു

മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ മന്ത്രിസഭാ തീരുമാനിച്ചു ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് മുഖേന ഇന്ന് തന്നെ സ്വത്ത് വിവരം വെളിപ്പെടുത്താനാണ് തീരുമാനം

ആദ്യമത്സരത്തിൽ ലോക ര ാം നമ്പർ താരങ്ങളായ ഇംഗ്ല ിനോട് ഇന്ത്യ സമനില പിടിച്ചു

ജോഹന്നാസ് ബർഗിൽ കഴിഞ്ഞ വർഷം എച്ച് ഡബ്ല്യൂ എൽ സെമിഫൈനലിൽ ഇന്ത്യ അയർലന്റിനോട് പരാജയപ്പെട്ടിരുന്നു

വ്യാപകമായ അക്രമങ്ങൾക്ക് പതിനൊന്നാം പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനം സാക്ഷിയായി ക്വറ്റ ലർക്കാന കുസ്ദാർ സാബി തുടങ്ങിയ മേഖലകളിലാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്

കലാപത്തിനും തീവെയ്പ്പിനും വസ്തു വകകൾക്ക് കേടുപാടുകൾ വരുത്തിയതിനും നിയമപരമല്ലാത്ത കൂടിച്ചേരലിനും ഐ പി സിയുടെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് ഹർദ്ദിക് പട്ടേലും ര ് അനുയായികളും കുറ്റവാളികളാണെന്ന് കോടതി കടെ ത്തി